റിപ്പോർട്ട് സംബന്ധിച്ച് നിയമസഭ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ പരിശോധനയടക്കം സുതാര്യമായ പ്രക്രിയകൾ നിലവിലുണ്ട്

ജി പി യെ വെള്ളപൂശുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയ്ക്കുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

തിലോത്തമൻ നിയമസഭ റേഷൻ കടകൾ അനുവദിക്കുമ്പോൾ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കും മുൻഗണന നൽകാൻ നിർദ്ദേശമുണ്ടെന്ന് മന്ത്രി പി

കേരള റേഷനിങ് ഓർഡർ പ്പരിഷ്ക്കരിക്കുന്നതിന് പ്രത്യേക ഉത്തരവുകൾ ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു